ഇന്ത്യയോളം സഹിഷ്ണുതയുള്ള മറ്റ് രാഷ്ട്രങ്ങൾ ലോകത്തില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ്സിംഗ്

പ്രിമിയർ ലീഗ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അഹമ്മദാബാദ് സ്മാഷ് മാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റേൺ വാരിയേഴ്സിനെ തോൽപിച്ചു

വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് ദേശീയപാത സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ

ഐ ടി യും ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഐ ടിയിൽ നടക്കുന്ന ചടങ്ങിൽ പയ്ക വിപ്തവ സ്മരണയ്ക്കായി നാണയവും പോസ്റ്റൽ സ്റ്റാമ്പും അദ്ദേഹം പുറത്തിറക്കും

ഇന്ത്യയിൽ നിലനിൽക്കുന്ന സഹിഷ്ണുത പോലെ മറ്റൊന്ന് ലോകത്തിന്റെ ഒരു കോണിലും കണ്ടെത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വിവിധ മതവിശ്വാസികൾ സ്വരചേർച്ചയോടെയാണ് ജീവിക്കുന്നത് ഇസ്ലാം മതവിശ്ചാസത്തിന്റെ വിവിധ വിഭാഗങ്ങളും ഇന്ത്യയിൽ ഒത്തൊരുമയോടെ കഴിയുന്നു അവർ ഇന്ത്യയെ ശാക്തീകരിക്കുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഗണ്യമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും ആത്മവിശ്വാസത്തോടെ അവർ അത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

എസ് പാർട്ടി അധ്യക്ഷനുമായ കെ ചന്ദ്രശേഖർ റാവു പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ബി ജെ പി ഇതര കോൺഗ്രസ് ഇതര മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുള്ളൂ വിശാഖപട്ടണത്തെ ശാരദാപീഠത്തിൽ പ്രാർത്ഥന നട്ടത്തിയ്ശേഷം ഭൂവനേശ്വരിൽ എത്തിയ ശ്രീ

ദേശീയ രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റം കൊണ്ടൂവരാൻ പ്രാദേശിക പാർട്ടികൾ തമ്മിലുള്ള ഏകോപനം ഉണ്ടാകണമെന്നും രാജ്യമെമ്പാടുമുള്ള ജനങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തണമെന്നും ശ്രീ

കൂടിക്കാഴ്ചയിൽ രാഷ്ട്ര സംബന്ധിയായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു

ചന്ദ്രശേഖർ റാവു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പാർട്ടി പ്രസിഡന്റ് അമിത് ഷാ കുടുംബവാഴ്ചയിലും ജാതി പറഞ്ഞു പ്രീണനത്തിലും അഭിരമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ രംഗം ഒഴിയേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പിയുടെ ബൂത്തുതല പ്രവർത്തകരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒട്ടേറെ അഴിമതി കുംഭകോണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള എൻ

ഡൽഹി ഭരിക്കുന്നു ആർ ആദ്മി പാർട്ടി ഗവൺമെന്റ് രാജ്യതലസ്ഥാനത്തെ യൂവ്ാക്കളെ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണെന്നൂറ് സ്ൽഹിയിൽ വൈ ഫൈ കണക്ടിവിറ്റി ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ആ വാഗ്ദാനം ഇതുവരെ നിറവേറ്റിയിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു

മുന്നു ദിവസമായി രാഷ്ട്രപതി ഹൈദരാബാദിലുണ്ട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആന്ധ്രാപ്രദേശ് തെലങ്കാന ഗവർണർ ഇ

ഇന്ന് രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും

മൂന്നു മുതൽ അഞ്ചു ദിവസം വരെ കഴിവതും ജനങ്ങൾ ഈ നിർദ്ദേശം പാലിക്കണമെന്നും സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും മലിനീകരണ ബ്ലോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഇത് കാൻസർ പക്ഷാഘാതം പോലുള്ള ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് കേന്ദ്ര മാലിന്യ നിയന്ത്രണ ബോർഡ് അറിയിച്ചു

കൃഷ്ണ കോംപ്ലെക്സ് എന്ന കെട്ടിടത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തീപിടിത്തം ഉണ്ടായത് തുടർന്ന് സമീപത്തുള്ള സംഭരണ ശാലകളിലേയ്ക്ക് തീ അതിവേഗം പടരുകയായിരുന്നുവെന്ന് നിസാംപൂർ മുൻസിപ്പൽ കോർപ്പറേഷൻ അഗ്നിശമന മേധാവി ദത്ത സാൽവി പറഞ്ഞു

അഗ്നിബാധയുടെ കാരണങ്ങൾ അധികൃതർ അന്വേഷിച്ചുവരികയാണ്

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ഹഡ്കോയിൽ നിന്ന് ആദ്യ ഗഡൂ കിട്ടുന്നതോടെ ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഗഡു നൽകാൻ കഴിയുമെന്ന് ലൈഫ് മിഷൻ മേധാവി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബി എസ്

പൂനെയിൽ ഒരു സ്കൂളിലെ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

കായിക സാമഗ്രികൾ വാങ്ങുന്നതിനും സ്കൂൾ ലൈബ്രറിക്കായി പുസ്തകങ്ങൾ സമാഹരിക്കുന്നതിനുമാണ് ഈ തുക

പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെ തുടർന്നാണ് ഷെരീഫിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത് മുൻ പ്രധാനമന്ത്രിയ്ക്കെതിരെ ബാക്കിയുള്ള രണ്ട് അഴിമതി കേസുകളിലും വിധി പറയാനുള്ള സുപ്രീംകോടതിയുടെ അന്തിമ സമയപരിധി ഇന്ന് അവസാനിക്കും

ടർക്കി പ്രസിഡന്റ് റസിപ് തയ്യിപ് എർദോഗൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ നടത്തിയ സംഭാഷണത്തിലാണ് തിരുമാനം ഇരു രാജ്യങ്ങളും സൈനിക നയതന്ത്ര സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് വെളളിയാഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്

നേരത്തെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ച് മുംബൈ റോക്കറ്റ്സ് ജേതാക്കളായി ഇന്ന് വൈകിട്ട് പൂനെ അവധ് വാരിയേഴ്സിനെ നേരിടും

മാറ്റിസ് താൻ സ്ഥാനമൊഴിയുകയാണെന്ന് രണ്ടു മാസത്തിനുമുമ്പെ പ്രഖ്യാപിച്ചിരുന്നു

അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ കാഴ്ചപാടുകളുമായി തനിക്ക് കഴിയില്ലെന്നാണ് അദ്ദേഹം രാജിക്ക് കാരണമായി സൂചിപ്പിച്ചത്